മന്ത്രിസഭയുടെ അംഗീകാരം

ഡൽഹിയിലെ അനധികൃത് കോളനികളിലെ ജനങ്ങൾക്ക് താമസ ന് സ്ഥലത്തിന് നിയമപരമായ ഉടമസ്ഥാവകാശം നൽകാൻ ക്യാബിനറ്റ് തീരുമാനം

ന്യൂഡൽഹിയിൽ തുടക്കമാകും

പ്രധാനമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും

ഇന്നലെ ന്യൂഡൽഹിയിൽ കേന്ദ്ര മന്ത്രിസഭായോഗത്തിന് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്

അസമിലെ നുമലിഗഡ് റിഫൈനറി ബിപിസിഎല്ലിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാകും ഓഹരികൾ വിൽക്കുക

പുതിയ സംവിധാനത്തിലൂടെയുള്ള ധനസമാഹരണം ദേശീയപാതകളുടെ വികസനത്തിനായി വിനിയോഗിക്കും

ഒ ടി മോഡൽ നടപ്പാക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്

കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിലാണ് തീരുമാനങ്ങൾ വിശദീകരിച്ചത് സംസ്ഥാനത്തിന്റെ കീഴിലുള്ള എം

അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് നാലായിരം ടൺ സവാള വാങ്ങുന്നതിനുള്ള ടെൻഡർ ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്

ആദ്യഘട്ടത്തിൽ ജപ്പാൻ പേറ്റന്റ് ഓഫീസുമായി സഹകരിച്ച് മൂന്ന് വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വിവരസാങ്കേതിക വിദ്യ വസ്ത്ര വ്യാപാരം ഓട്ടോമൊബൈൽ തുടങ്ങിയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പേറ്റന്റ് അപേക്ഷകൾ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് പദ്ധതിയിലൂടെ പരിഗണിക്കും

സമ്മേളനത്തിനു മുമ്പായി സി

ജിയുടെ ഓഫീസിലെ മഹ്ഠീത്മാഗാന്ധിയുടെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും

വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ലതാ ജയരാജിന് പകരം പി

അപേക്ഷ ക്ഷണിക്കാതെ പഴയ പാനലിൽ നിന്നാണ് നിയമനം വാളയാർ കേസിൽ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടാൻ കാരണം പ്രോസിക്യൂട്ടറുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഗവൺമെന്റിന്റെ നടപടി

ചിട്ടി ഫണ്ട് മേഖലയെ കൂടുതൽ സുതാര്യമാക്കുന്നതിനാണ് ബിൽ ഭേദഗതി ചെയ്യുന്നത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലുള്ള നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി അനുരാഗ് ഠാക്കൂർ ബില്ലിന്മേലുള്ള ചർച്ചയുടെ മറുപടിയിൽ പറഞ്ഞു

സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടത്താനും സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ളവയിൽ ഇളവ് നൽകാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്

കേന്ദ്ര വാർത്താ ്വിതര്ണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ മേള ഉദ്ഘാടനം ച്ചിയ്തു

സിനിമ നിർമ്മാണത്തിന് എല്ലാ സൌകര്യങ്ങളും ലഭ്യമാക്കാനും അനുമതിക്കുമായി ഗവൺമെന്റ് ഏകജാലക സംവിധാനം സുവർണ്ണ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീ

ജൂബിലി പുരസ്ക്കാരം പ്രശസ്ത നടൻ രജനീകാന്തിന് കേന്ദ്രമന്ത്രി സമ്മാനിച്ചു മെഗാസ്റ്റാർ അമിതാഭ് ബച്ചന്റെ സാന്നിധ്യത്തിലാണ് പുരസ്ക്കാരം സമ്മാനിച്ചത്

ഇറാനിയൻ സംവിധായിക സമീറ മക്മൽ ബഫിന്റെ മാർഗി ആന്റ് ഹെർ മദർ ആണ് സമാപന ചിത്രം

മലയാളത്തിൽ നിന്നും മനു അശോകന്റെ ഉയരെ ടി കെ രാജീവ്കുമാറിന്റെ കോളാമ്പി എന്നിവയും പ്രദർശനത്തിനുണ്ട്

രാജ്യത്തെ ബയോടെക്നോളജി രംഗത്ത് നടക്കുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയായിരിക്കും ഇതെന്ന് ബയോടെക്നോളജി വകുപ്പ് സെക്രട്ടറി ഡോ

സ്റ്റാർട്ടപ്പുകൾ ഇടത്തരം വൻകിട കമ്പനികൾ തുടങ്ങിയ വിഭാഗങ്ങളെ ഒരേ വേദിയിൽ കൊണ്ടുവരാൻ ഉച്ചകോടിയിലൂടെ കഴിയുമെന്നും അവർ പറഞ്ഞു

രേണു സ്വരൂപ് അറിയിച്ചു

ടൂറിസം വിവര ഉൾക്ക്മാറ്റം വിജ്ഞാനം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സൃഫ്ക്രണം മെച്ചപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ്ട് ധ്ാരണാപത്രത്തിന്റെ ലക്ഷ്യം വിനോദസഞ്ചാരമേഖലയുടെ ്വികസനത്തിന് ആവശ്യമായ നയരൂപീകരണത്തിന് മുൻകാലങ്ങളിലെ പ്രവർത്തന പരിചയം സംബന്ധിച്ച വിവരങ്ങൾ ഇരുരാജ്യങ്ങളും കൈമാറും

നായിക് മനിന്ദർ സിംഗ് സിപ്പായിമാരായ വീർപൽസിംഗ് ഡിംബിൾ കുമാർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത് കൊടിയ തണുപ്പിലും രാജ്യത്തിന് കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ തൃാഗം അവരുടെ മഹത്വം ഉയർത്തുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

നിലവിലെ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ ഇന്ന് ഔദ്യോഗികമായി രാജിസമർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്

എസ് ഡോളർ വില വരുന്ന ആയുധങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാൻ യു എസ് കോൺഗ്രസ്സിന് അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് നിർദ്ദേശം നൽകി ഈ അത്യാധുനിക ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്നു

് ജ്ന്ത്യ്ക്ക് പുറമെ ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളാണ് യു